നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

മെഡലുകൾ ജിൻസൺ ജോൺസണ് സ്വർണം

ചിത്രയ്ക്കും സീമ പുനിയയ്ക്കും വെങ്കലം

വൃാപാരം സമ്പദ്വൃവസ്ഥ ഡിജിറ്റൽ കണക്ടിവിറ്റി തുടങ്ങിയ മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിച്ച് സഹകരണം വർദ്ധിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമേദി ബിംസ്റ്റെക് അംഗരാഷ്ട്രങ്ങളോട് അഭ്യർത്ഥിച്ചു ബിംസ്റ്റെക് ഉച്ചകോടിയുടെ ഉദ്ഘാടന സെഷനിലാണ് പ്രധാനമന്ത്രി ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടത്

നളന്ദ സർവ്വകലാശാലയിൽ ്ബംഗാൾ ഉൾക്കടൽ മേഖലയെ സംബന്ധിച്ച പഠനങ്ങൾക്കായി ഒരു കേന്ദ്രം സ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കല സംസ്കാരം സമുദ്ര നിയമങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഗവേഷണം നടത്തുന്നതിനുദ്ദേശിച്ചാണിത്

നേരത്തെ ബിംസ്റ്റെക് അംഗരാഷ്ട്രങ്ങളിലെ നേതാക്കൻമാർ നേപ്പാൾ പ്രസിഡന്റ് ബിദ്ദ്യ ദേവി ഭണ്ഡാരിയെ സന്ദർശിച്ചു

നേപ്പാൾ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും പ്രതിരോധമന്ത്രിയുമായ ഈശ്വർ പൊഖാറെൽ അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു

സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതോടൊപ്പം ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയുമായും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായും ശ്രീ നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും

സമാധാനപരമായ അഭിവൃദ്ധിയുള്ള സുസ്ഥിരമായ ബംഗാൾഉൽക്കടൽ മേഖലയിലേക്ക് എന്നതാണ് നാലാമത് ബിംസ്റ്റെക് സമ്മേളനത്തിന്റെ പ്രമേയം

രാജ്യത്ത് തുടരെ തുടരെ തെരെഞ്ഞെടുപ്പ് നടക്കുന്ന പ്രക്രിയയ്ക്ക് പരിഹാരമായാണ് തെരെഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനുള്ള നിർദ്ദേശമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി ഇത് നടപ്പിൽ വരുത്തുന്നതിനായി ഭരണ ഘടനയിലും തെരെഞ്ഞെടുപ്പ് നിയമങ്ങളിലും കമ്മീഷൻ മാറ്റങ്ങൾ നിർദ്ദേശിച്ചിട്ടു ് പൊതുജനങ്ങളുടെ പണം പാഴാക്കാതിരിക്കുക ഭരണഘടനാപരമായ നടപടികളും സുരക്ഷാ സേനയെ വിന്യസിക്കുന്നതുമടക്കമുള്ള വിഷയങ്ങളിലുമുള്ള അധിക ഭാരം കുറയ്ക്കുക എന്നിവയും ഒറ്റത്തവണ തെരെഞ്ഞെടുപ്പ് കൊ ുള്ള നേട്ടങ്ങളാണ്

നോട്ടു പിൻവലിച്ചതിന്റെ ലക്ഷ്യം കള്ളപ്പണം അസാധുവാക്കുക എന്നതു മാത്രമല്ല നികൂതി കൊടുക്കാത്ത സമൂഹത്തിൽ നിന്നൂം നികൂതി കൊടുക്കുന്ന സമൂഹം എന്ന ലക്ഷ്യത്തിലേക്ക് ഇൻഡ്യയെ നയിക്കുക എന്നതു കൂടിയായിരുന്നു എന്ന് ശ്രീ

ഇതിനോടകം ഫ്രാൻസിന്റെ സമ്പദ്വൃവസ്ഥയെ മറികടക്കാൻ ഇന്ത്യയ്ക്കായിട്ടു ് അടുത്ത വർഷത്തോടെ ബ്രിട്ടന്റെ സമ്പദ്വ്യവസ്ഥയേയും ഇന്ത്യ മറികടക്കും

ജെയ്റ്റ്ലി അറിയിച്ചു

മേഖലയിൽ ഉ തീവ്രവാദികൾ ഉ ന്ന് രഹിസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തിർച്ചിൽ നടത്തിയതെന്ന് സുരക്ഷാവൃത്തങ്ങൾ അറിയിച്ചു ജില്ലയിലെ പരാമൊഹല്ല ഹാജിൻ മേഖലയിലെത്തിയ സുരക്ഷാസേനയ്ക്കു നേരെ തീവ്രവാദികൾ ആക്രമണം നടത്തുകയായിരുന്നു കൂടുതൽ തീവ്രവാദികൾ ഉ ായെന്ന് പരിശോധിക്കുന്നതിനായി പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്

പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ ചർച്ചകൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം പരിസ്ഥിതിക്കനുയോജൃമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് മേഖലയിൽ നടത്തുക

റോഡ് നിർമ്മാണത്തിൽ ശാസ്ത്രീയ പഠനം അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ സീമാൂപുനിയയും വെങ്കല നേട്ടം സ്വന്തമാക്കി

മെഡൽ പട്ടികയിൽ ചൈനയാണ് ഒന്നാമത് ജപ്പാൻ ര ാം സ്ഥാനത്തും ദക്ഷിണകൊറിയ മൂന്നാം സ്ഥാനത്തുമാണ് ഇന്ത്യ എട്ടാം സ്ഥാനത്ത് തുടരുന്നു

ടി നടപ്പിലാക്കിയതിലൂടെ യാഥാർത്ഥ്യമായതെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന് പറഞ്ഞൂ്

രാജ്യത്തുടനീളം ജി

ടി നടപ്പിലായിട്ടു ന്ന് ഉറപ്പു വരുത്തണമെന്നും പരിശീലനാർത്ഥികളോട് രാഷ്ട്രപതി ആവശ്യപ്പെട്ടു

എസ് ഉദ്യോഗസ്ഥരുടെ ചുമതലയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു

ഇന്നു രാവിലെ ശ്രീനഗറിലെ വസതിയിൽ നടത്തിയ റെയ്ഡിനെ തുടർന്നാണ് അറസ്റ്റ്

കേന്ദ്ര ടൂറിസം സഹമന്ത്രി ശ്രീ അൽഫോൻസ് കണ്ണന്താനം ന്യൂ ഡൽഹിയിൽ അറിയിച്ചതാണ് ഇക്കാര്യം

പ്രളയക്കെടുതി അനുഭവിക്കുന്ന സംസ്ഥാനത്തിന് കൂടുതൽ ധനസഹായം നൽകണമെന്ന് സംഘം അഭ്യർത്ഥിച്ചു

സംസ്ഥാനത്തിന് കഴിയുന്നത്ര പിന്തുണ നൽകണമെന്ന് ആഭ്യന്തമന്ത്രിയോട് അഭ്യർത്ഥിച്ചതായി കൂടിക്കാഴ്ചയ്ക്കു ശേഷം ശ്രീ

കെ ആന്റണി മാധ്യമങ്ങളോട് പറഞ്ഞു

നാഗാലാന്റിന്റെ പ്രിവിധ ഭാഗങ്ങളിൽ പ്രളയവും മണ്ണിടിച്ചിലും മൂലമു ായ അവ്സ്ഥയെപ്പറ്റിയാണ് ചർച്ച ചെയ്തത് രക്ഷാദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾക്കായി എൻ

രാജ്നാഥ് സിംഗ് ടിറ്ററിൽ കുറിച്ചു

ഒരു വാർത്താ ഏജൻസിക്കു നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടത്

ഇതുമായി ബന്ധപ്പെട്ട് വിവിധ പ്രദേശങ്ങളിൽ വിവിധ നിരക്കുകളാണ് കോൺഗ്രസ് അദ്ധ്യക്ഷൻ രാഹുൽഗാന്ധി തന്നെ പറഞ്ഞതെന്നും ശ്രീ ജെയ്റ്റ്ലി ആരോപിച്ചു ജനങ്ങളെ എക്കാലവും കബളിപ്പിക്കാനാകില്ലെന്ന് കോൺഗ്രസ് ഓർമ്മിക്കണം

ഗവൺമെന്റുകൾ തമ്മിലുള്ള സുരക്ഷാകരാർ അനുസരിച്ച് എല്ലാക്കാര്യങ്ങളും വിശദമാക്കാനാകില്ലെന്നും ശ്രീ ജെയ്റ്റ്ലി പറഞ്ഞു

കാലാവസ്ഥാ മാറ്റങ്ങൾ നിയന്ത്രിച്ച് വന സംരംക്ഷണം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നയങ്ങളാണ് ഇതിലുൾപ്പെടുത്തിയിട്ടുള്ളത്